തിരൂർ കോഴിക്കോട് ആലപ്പുഴ കണ്ണൂർ എന്നിവിടങ്ങളിൽ നിന്നുള്ള ട്രെയിനുകളാണ് റദ്ദാക്കിയത് ഇന്ന് നാട്ടിലേക്ക് മടങ്ങാനാകില്ലെന്നും വരുംദിവസങ്ങളിൽ തിരികെ പോകാനാകുമെന്നും ജില്ലാ ഭരണകൂടം അതിഥി തൊഴിലാളികളെ അറിയിച്ചിട്ടുണ്ട് നാലിടങ്ങളിൽ നിന്ന് നാലായിരത്തോളം അതിഥി തൊഴിലാളികളാണ് ഇന്ന് മടങ്ങാനിരുന്നത് നടപടി ക്രമങ്ങൾ പൂർത്തിയായിരുന്നെങ്കിലും ബീഹാർ സർക്കാരിൽ നിന്ന് അനുമതി ലഭിക്കാത്തതിനെ തുടർന്നാണ്ട് ട്രെയിൻ റദ്ദാക്കേണ്ട സാഹചര്യമുണ്ടായത്